കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത തലയോഗത്തിൽ തീരുമാനം സർക്കാർ ഓഫീസുകളിൽ ഹാജർ പ്പകുതിയാക്കും

വിദ്യാഭ്യാസം ഓൺലൈൻ വഴി മാത് വാക്സിൻ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കും ്വാരാന്തൃങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾക്കും തീരുമാനും

കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ സി

ഐ എം ഉം കോൺഗ്രസും രംഗത്ത്

നിർദ്ദേശങ്ങൾ ആരോഗൃ വകുപ്പ് പുതുക്കി നിശ്ചയിച്ചു

കൊവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു സർക്കാർ ഓഫീസുകളിൽ പകുതി പേർ ജോലിങ്ക്കെത്തിയാൽ മതിയെന്നും വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ മാത്രം മത്ത്യെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത തില്യോഗത്തിൽ തീരുമാനമായി

വാക്സീൻ വിതരണത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്

അതേസമയം നിലവിൽ മൂന്ന് ലക്ഷത്തിൽ താഴെ വാക്സീൻ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്

ആശുപത്രികളോട് സജ്ജമായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കും സംസ്ഥാനത്ത് കൂടുതൽ സെക്ടറൽ ഓഫീസർമാരെയും പോലീസിനെയും വിന്യാസിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കൊവിഡ് പോസിറ്റീവ് ആകുന്നവർ അവരുമായി സമ്പർക്കത്തിൽ വന്നവർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ എന്നിവരെ കൃത്യമായി നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട്

വാക്സിനേഷൻ നയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയതിനെ തുടർന്നാണ് കോവിഷീൽഡ് നിർമാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്സിന്റെ വില പ്രഖ്യാപിച്ചത്

രണ്ട് തവണ ജനിതക വ്യതിയാനം വന്ന കൊറോണ വൈറസിനെതിരെയും കോവാക്സിൻ ഫലപ്രദമാണെന്ന് ഐസിഎംആർ അറിയിച്ചു വി മുരളീധരൻ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതം മാത്രം കാത്തു നിൽക്കാതെ കേരളം സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങണമെന്ന് കേന്ദ്രമന്ത്രി വി

സംസ്ഥാനത്തെ വാക്സിൻ കേന്ദ്രങ്ങളിൽ അരാജകത്വമാണെന്നും വാക്സിൻ സ്വീകരിക്കാനെത്തുന്നവർക്ക് രോഗം ബാധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു വാക്സിൻ ക്ഷാമം ആണെന്ന് പറഞ്ഞ് ആരോഗൃമന്ത്രിയടക്കം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നത് അവസാനിപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

വാക്സിൻ കിട്ടാത്തതുമൂലം കേരളം കടുത്ത പ്രയാസം നേരിടുകയാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എ

സംസ്ഥാനം സ്വന്തം നിലയ് ക്ക് വാക്സിൻ വാങ്ങണമെന്ന നിലപാട് കനത്ത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുമെന്നും പുതുക്കിയ വാക്സിൻ നയത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു

കോവിഡ് രണ്ടാംതരംഗം തീവ്രതയോടെ രാജ്യമാകെ വ്യാപിക്കുമ്പോൾ പരമാവധി വാക്സിൻ ജനങ്ങളിലെത്തിക്കുകയാണ് കേന്ദ്രസർക്കാർ സംസ്ഥാനങ്ങൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാന്യത സമ്മാനിക്കുന്നതാണ് പുതിയ വാക്സിൻ നയമെന്നും അദ്ദേഹം പറഞ്ഞു

സുരേന്ദ്രൻ വാക്സിൻ ഇല്ല എന്ന പ്രചരണം നടത്തി അനാവശ്യമായി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ജനങ്ങളെ ഭീതിയിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് പരിഹരിക്കാൻ പറ്റുന്ന പ്രതിസന്ധിയേ രാജൃത്ത് നിലനിൽക്കുന്നുള്ളൂ എന്നും അത് കേന്ദ്ര സർക്കാർ പരിഹരിക്കുമെന്നും ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു

എറണാകുളം ലോക്ക്ഡൌൺ എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിൽ പ്രാദേശിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ജില്ലാഭരണകൂടം ഇന്നു വൈകുന്നേരം ആറ് മുതൽ ഏഴ് ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ

ഇവർ എട്ടാം ദിവസം ആർ ടി

സി

കേരളത്തിലേക്ക് വരുന്ന അന്തർദേശീയ യാത്രക്കാർ സംസ്ഥാനത്ത് എത്തുമ്പോൾ കേന്ദ്രസർക്കാർ മാർഗനിർദേശ പ്രകാരം ആർ ടി

സി ആർ പരിശോധന നടത്തുകയും വീട്ടിൽ ഐസൊലേഷനിൽ ഇരിക്കുകയും വേണം

ബിസിനസ് ആവശ്യങ്ങൾക്കായി കേരളത്തിൽ എത്തുന്നവർ ഉൾപ്പെടെയുള്ള അന്തർസംസ്ഥാന യാത്രക്കാർ ഇ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം

ടി

സി ആർ

സി ആർ

സി കോവിഡ് വ്യാപനത്തെ തുടർന്ന് തിരുവനന്തപുരം റീജ്യണൽ ക്യാൻസർ സെന്ററിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി തുടർ പരിശോധന മാത്രം വേണ്ട രോഗികൾ മറ്റ് ആശുപത്രികളെ സമീപിക്കേണ്ടതാണ്

വഴി ഡോക്ടറുമായി സംസാരിക്കാനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്

രോഗിയും ഒപ്പമുള്ള വൃക്തിയും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം

കൺസ്യൂമർഫെഡിലെ എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റു കളിലും നീതി മെഡിക്കൽ സ്റ്റോറുകളിലും ഹോം ഡെലിവറി സംവിധാനം നാളെ ആരംഭിക്കും

വാട്സ്ആപ്പ് വഴിയോ ഫോൺ കോൾ വഴിയോ കൺസ്യൂമർ ഫെഡിന്റെ സേവനം ലഭിക്കും

ഓക്സിജൻ തടസ്സപ്പെട്ടതിനെത്തുടർന്നാണ് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന രോഗികൾ മരിച്ചത്

എൽ രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത ചെന്നൈയെ നേരിടും